ഒരുക്കങ്ങൾ പൂർണം

ഏഴ് മണി വരെ

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയപ്രതീക്ഷയിൽ അവസാന മണിക്കൂറുകളിലും നിശബ്ദ പ്രചാരണത്തിൽ മുന്നണികൾ

പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വകുപ്പ്

അടുത്ത അഞ്ച് വർഷത്തെ ഭരണം ആർക്ക് നൽകണമെന്നതിൽ കേരള ജനത നാളെ വിധിയെഴുതും

മലപ്പുറം ലോക്സഭ മണ്ഡലത്തിലേക്കുളള ഉപതെരഞ്ഞെടുപ്പും നാളെയാണ് കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വോയ്സ് അവസാന മണിക്കൂറിലും നിശബ്ദ പ്രചാരണത്തിലൂടെ ഓരോ വോട്ടും ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഏറെക്കുറെ പൂർത്തിയായി

അതത് മണ്ഡലങ്ങളിലെ വരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇവയുടെ വിതരണം അതീവ സുരക്ഷയോടെയാണ് പോളിംഗിന് ആവശ്യമായ എല്ലാ വസ്തുക്കളുടേയും വിതരണം നടന്നത്

ഡി കാർഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർ സ്ലിപ്പ് മാത്രം മതിയാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഇതോടെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ഏക ജില്ലയാകാനൊരുങ്ങുകയാണ് കണ്ണൂർ

ഇതിനോടൊപ്പം സി സി ടി

ആബ്സെന്റീസ് ഷിഫ്റ്റ് ഡെത്ത് വിഭാഗത്തിലുളള ആളുകളുടെ വോട്ടർ പട്ടിക നിയോജകമണ്ഡലങ്ങളിലെയും ബൂത്തടിസ്ഥാനത്തിൽ ബി

അബ്ദുൽ നാസർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

താരമണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര

രാജഗോപാൽ തുറന്ന അക്കൌണ്ട് കുമ്മനം രാജശേഖരനിലൂടെ നിലനിർത്താമെന്ന ഉറപ്പിലാണ് ബി ജെ

മണ്ഡലം പിടിച്ചെടുക്കാൻ കെ മുരളീധരനെയാണ് യു ഡി

അതേസമയം വി ശിവൻകുട്ടിയിലൂടെ മണ്ഡലം തിരികെ പിടിക്കാൻ എൽ ഡി എഫൂം ലക്ഷ്യമിടുന്നു കഴക്കൂട്ടത്ത് എൽ

ജെ

സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യു ഡി എഫിന്റെ എസ്

ലാലും നേർക്കുനേർ വരുമ്പോൾ മത്സരം ആവേശത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ വോട്ടർമാർ എങ്ങനെയാവും ചിന്തിക്കുക എന്ന് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്

പ്രശാന്തിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് എൽ

എഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ എസ് നായരാണ് ഇവിടെ യു ഡി എഫ്

തുടർച്ചയായി എൻഡി എ യ്ക്ക് ഇവിടെ വോട്ടുകൾ വർദ്ധിക്കുന്നതിനാൽ ഇത്തവണ വട്ടിയൂർക്കാവ് സ്വന്തമാക്കാമെന്ന വിശ്വാസത്തിലാണ് ബി ജെ

ജില്ലാ പ്രസിഡന്റ് വി

രാജേഷിനെ രംഗത്തിറക്കിയിട്ടുള്ളത്

ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് പത്തനംതിട്ടയിലെ കോന്നി വർഷങ്ങളായി യു ഡി

ഡി എഫ് സ്ഥാനാർത്ഥിയ്കായി റോബിൻ പീറ്ററാണ് രംഗത്തുള്ളത്

എ സ്ഥാനാർത്ഥി താമര വിരിയുമെന്ന് ബി ജെ

കണക്ക് കൂട്ടുന്ന മറ്റൊരു മണ്ഡലമാണ് പാലക്കാട്

ഡി

ഹാട്രിക് ജയം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ഷാഫി പറമ്പിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി

ഡി എഫിനായി സി

പ്രമോദാണ് മത്സര രംഗത്തുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർകോട്ടെ മഞ്ചേശ്വരം

സുരേന്ദ്രൻ കോന്നിക്ക് പുറമെ മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകതയും മഞ്ചേശ്വരത്തിനുണ്ട്

എഫ് സ്ഥാനാർത്ഥി മുസ്സീം ലീഗിന്റെ എ

ഡി എഫിനായി ജനവിധി തേടുന്നത്

ഭരണ തുടർച്ചയ്ക്കായി ആരുമായും കൈകോർക്കാമെന്ന നയമാണ് സി

ഐ എം സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷ ഉയർന്നു നിൽക്കുകയാണെന്നും ശ്രീ

ആറുപതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിക്കുന്ന ഇരുമുന്ന്ണിക്ളിൽ നിന്നുമുള്ള മാറ്റത്തിന് ജനം ആഗ്രഹിക്കുന്നതായും ശ്രീ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാവർക്കും വോട്ട് ് ചെയ്യാനുള്ള സൌകര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്

രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനുള്ള പേന കയ്യിൽ കരുതുക

അപ്പോഴും ഉയർന്ന താപനില കണ്ടാൽ അവർക്ക് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാം കോവിഡ് രോഗികളും രോഗലക്ഷണമുള്ളവരും വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ

ഇതോടൊപ്പം അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പും നാളെയാണ്

സ്വർണ്ണവിലയിൽ മാറ്റമില്ല